ഇന്ത്യയും സിംഗപ്പൂരും സംയുക്തമായി ന്ടുത്തുന്ന സൈനിക അഭ്യാസ പരിശീലനങ്ങളിൽ രാജ്യരക്ഷ്യാ മ്ന്ത്രി രാജ്നാഥ് സിങ് സംതൃപ്തി രേഖപ്പെടുത്തി

എടുത്തു

അൻപതാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരി തെളിയും

രാവിലെ എട്ട് മണിക്ക് അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിക്കുക മികച്ച സേവനങ്ങൾ പരിഗണിച്ച് ഒരു സൈനിക കേന്ദ്രത്തിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ് രാവിലെ കേഡറ്റുകളുടെ പരേഡിനും രാഷ്ട്രപതി സാക്ഷ്യം വഹിക്കും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ട് നാലരയോടെ ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി രാവിലെ ഏഴിമലയിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ത്തുന്ന രാഷ്ട്രപതി വ്യോമസേനാ വിമാനൂത്തിൽ ഡൽഹിക്ക് മടങ്ങും

ഇന്ത്യയും സിംഗപ്പൂരും നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസ പരിശീലനങ്ങളിൽ ശ്രീ രാജ്നാഥ് സിങ് സംതൃപ്തി രേഖപ്പെടുത്തി പ്രതിരോധ സഹകരണ രംഗത്ത് ഉന്നതതല ഉഭയകക്ഷി ചർച്ചകൾ കൂടുതൽ സജീവമാക്കാനും ചർച്ചയിൽ ധാരണയായി പസഫിക് മേഖലയിലും ദക്ഷിണ ചൈനാക്കടലിലും ഇന്ത്യൻ നിലപാട് ശ്രീ

ആസിയാൻ സഖ്യരാജ്യങ്ങളുടെ താൽപര്യം സംരക്ഷിച്ച് സുതാര്യവും സ്ഥിരതയുള്ളതുമായ സമീപനമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ന് ചേരുന്ന നാലാമത് ഇന്ത്യ സിംഗപ്പൂർ പ്രതിരോധ ഉച്ചകോടിയിൽ ഇരുരാജ്യങ്ങളും സംയുക്ത അധ്യക്ഷത വഹിക്കും

വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാടക ഗർഭധാരണം വിലക്കുന്നതാണ് ബിൽ

ദേശീയ വാടക ഗർഭധാരണ ബോർഡ് സംസ്ഥാന വാടകഗർഭധാരണ ബോർഡ് എന്നിവ കൊണ്ടുവരാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു രാജ്യത്ത് മൂവായിരത്തോളം അനധികൃത വാടകഗർഭധാരണ ക്ലിനിക്കുകളുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ഡോ

ദേശീയ തലസ്ഥാനം നേർട്ടൂന്ന്ത് അതിഗുരുതര സ്ഥിതിയാണെന്ന് കക്ഷിഭേദമില്ലാത്ത് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും അഭിപ്രായപ്പെട്ടു ീനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് നഗരം ക്ട്പ്പാട്ടിപടലത്തിൽ മുങ്ങുന്നതെന്ന് പടിഞ്ഞാറൽ ഡൽഹിയുട്ടെ ് എം പി യായ പ്രവീഷ് വർമ അഭിപ്രായപ്പെട്ടു

ലോക്സഭ നേരത്തെ ബിൽ പാസ്സാക്കിയിരുന്നു

ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ ട്രസ്റ്റിയായി നിയമിക്കാമെന്നാണ് ബില്ലിലെ വൃവസ്ഥ

ലെഫ്റ്റനന്റ് ഗവർണർ ജി

ചീഫ് സെക്രട്ടറിയാണ് കൌൺസിലിന്റെ സെക്രട്ടറി

ശർമ്മ ഫാറൂഖ് ഖാൻ എന്നിവരാണ് ഗവർണറുടെ ഉപദേഷ്ടാക്കൾ

മേഖലയിൽ പാകിസ്ഥാൻ ക്ട്ടത്തുന്ന നിഴൽ യുദ്ധത്തിന്റെ സമ്മർദ്ദം ജനങ്ങളിൽ ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജമ്മു കശ്മീർ പോലീസും സുരക്ഷാസേനകളും രാജ്യസുരക്ഷയും സമഗ്രതയ്ക്കുമായി നിരന്തരം പോരാടുകയാണെന്നും ഡി ജി പി പറഞ്ഞു

ഗാന്ധിയൻ ആശയങ്ങളിലൂടെ പുതിയ ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള നൂതനാശങ്ങൾ അവതരിപ്പിക്കാനായിരുന്നു നിർദ്ദേശം

ദുബായിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് അവയവ മാറ്റ ചികിത്സക്ക് നിബന്ധനകൾ ബാധകമാണ്

കുഞ്ഞുങ്ങൾ ക്ടാണേണ്ട ടെലിവിഷൻ പരിപാടികളുടെ തോതും ഉള്ളടക്കത്തിന്റെ ്നുണനിലവാരവും മാതാപിതാക്കൾ നിശ്ചയിക്കണം മുംബ്ബെയിൽ ഒരു പൊതു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി വീടുകളിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രുർക്ഷിതമായ സാഹചര്യം ഒരുക്കേണ്ടതിന്റെ ആവശ്യക്തയും നേരത്തെ ഡൽഹിയിൽ ദക്ഷിണേഷ്യ സുരക്ഷ ഉച്ചകോടിയിൽ ശ്രീമതി

രോഗം വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയ അത്യാവശ്യഘട്ടങ്ങളിൽ ഒരു ലക്ഷം രൂപക്കു മുകളിൽ പിൻവലിക്കാമെന്ന് ആർ

കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് ബാങ്കിന്റെ എം ഡി ഉൾപ്പെടെ അറസ്റ്റിലാണ് ഇതേ തുടർന്നാണ് ബാങ്കിന്റെ മുഴുവൻ ഇടപാടുകളും ആർ

നിക്ഷേപർക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ പിൻവലിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല നിക്ഷേപകർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്

മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രി സഭാ യോഗത്തിലാണ് തൊഴിലിടങ്ങൾ സ്ത്രീ സൌഹൃദം ആക്കുന്നതിന്റെ ഭാഗമായുള്ള തീരുമാനം ചൂരലും മുളയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉത്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചു

ഇറാനിയൻ സംവിധായിക സമീറ മക്മൽ ബഫിന്റെ മാർഗി ആന്റ് ഹെർ മദർ ആണ് സമാപന ചിത്രം

മലയാളത്തിൽ നിന്നും മനു അശോകന്റെ ഉയരെ ടി

ഗോവ ഗവർണർ സത്യപാൽ മാലിക് കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവദേക്കർ ശ്രീപദ് നായിക് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും മറ്റ് സംസ്ഥാന ഉദ്യോഗസ്ഥരും ആതിഥ്യമരുളും

പരാതിക്കാരിയുടെ വാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെങ്കിലും തെളിവുകൾ ശക്തമല്ലെന്ന് ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ ഇവാമാരി പെർസോൺ പറഞ്ഞു

ഇതോടെ ഇന്ത്യ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്തായി

ധനകാര്യവകുപ്പ് അറിയിച്ചതാണിത്

പൊന്നാനി സ്വദേശികളായ രണ്ടു പേരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു